കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

കോവിഡ് രോഗികൾക്കുള്ള ആർ

സി

കേരളത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സർവ്വകക്ഷിയോഗം ഇന്ന് അടച്ചിടൽ ഇളവുകൾ ദൂരൂപയോഗം ചെയ്യുന്നവർ കടൂത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി

രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറും മധ്യമേഖലയിലും ഉഷ്ണതരംഗം തുടരും

ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണിതെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

ദൌത്യത്തിന്റെ മൂന്നാം ഘട്ടത്തെക്കുറിച്ചും ചർച്ച ചെയ്തു റോഡുമാർഗ്ഗം ഇന്ത്യക്കാർ മടങ്ങിയെത്താൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മന്ത്രി ട്വീറ്റ് ചെയ്തു ഇറാനിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ജൂണിൽ നാട്ടിലെത്തിക്കും ഗൾഫിൽ പൊതുമാപ്പ് ലഭിച്ച ഇന്ത്യക്കാരെ എത്തിക്കാനും നടപടി സ്വീകരിച്ചതായി മന്ത്രി പറഞ്ഞു

ദിവസവും ആറ് വിമാനങ്ങളാണ് ഗയ വിമാനത്താവളത്തിൽ എത്തുന്നത് ആന്ധ്രാപ്രദേശിലെ രണ്ട് വിമാനത്താവളങ്ങളിൽ നിന്നും വിമാന സർവ്വീസ് പുനഃരാരംഭിച്ചു

പ്രവാസികളുമായി ദുബായ് അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ കഴിഞ്ഞ രാത്രി തിരുവന്തപുരത്ത് എത്തി

ശ്രമിക് ട്രെയിനുകളുടെ സുഗമമായ സേവനത്തിന് സംസ്ഥാനങ്ങളുടെ സഹകരണം കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു

ടി പി സി ആർ ടെസ്റ്റ് കിറ്റുകൾ ഉല്പാദിപ്പിക്കാൻ വഴിയൊരുങ്ങി ഇതിനുള്ള രണ്ട് എൻസൈമുകൾ വികസിപ്പിച്ചെടുത്തായി നാഷണൽ ബയോ മെഡിക്കൽ റിസോഴ്സ് ഇൻഡിജ്നൈസേഷൻ കൺസോർഷ്യം അദ്ധ്യക്ഷ ഡോ

ബംഗളുരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും റിച്ച് കോർ ഓഫ് സയൻസസ് കമ്പനിയും ചേർന്നാണ് ടെസ്റ്റ് കിറ്റുകൾ ഉൽപാദിപ്പിക്കുന്നത്

ഇൌജിപ്ത് പ്രസിഡന്റ് അബ്ദേൽ ഫത്താ അൽ സിസിക്കും ജനങ്ങൾക്കും അദ്ദേഹം ഈദ് ഉൽ ഫിത്തർ ആശംസ നേർന്നു സാഹചര്യം അനുകൂലമായാലൂടൻ ഇരുവർക്കും കൂടിക്കാഴ്ച നടത്താനാകുമെന്ന് അൽ സിസിയുമായുള്ളൂ ഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു

പട്ടിണികാരണം ക്ട്രിത്തർത്തിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തെ എം പി മാരും എം എൽ എ മാരും ഒന്നിച്ച് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൂട്ടായ പ്രതിരോധത്തിലൂടെ സംസ്ഥാനത്ത് രോഗവ്യാപനം തടയുന്നതിൽ ഇനിയും മികച്ച ഫലമുണ്ടാക്കാൻ കഴിയുമെന്നും ഇന്നലെ സാമാജികരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിങ്ങിൽ മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അടുത്ത് ഘട്ടത്തിലേയ്ക്ക് നീങ്ങുകയാണെന്നും ജനപ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ ഗൌരവമായി എടുക്കുമെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു

അതിനിടെ സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ തുടർച്ചയായ നാലാം ദിവസവും വർദ്ധന

സംസ്ഥാനത്ത് ഒറ്റ ദിവസം ഇത്രയുമധികം പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമാണ് പത്ത് പേർ രോഗമുക്തി നേടിയതായും മുഖ്യമന്ത്രി പറഞ്ഞു കോട്ടയം മലപ്പുറം ആലപ്പുഴ പാലക്കാട് എറണാകുളം കാസർഗോഡ് ജില്ലകളിലുള്ളവർക്കാണ് രോഗമുക്തി

കണ്ണൂർ കാസർഗോഡ് പാലക്കാട് ഇടുക്കി ക്കോട്ട്യം ജില്ലകളിലാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ സംസ്ഥാനത്ത് കൂടു്തൽ പ്ർ വിദേശത്ത് നിന്നും എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രോഗികൾ വർദ്ധിക്കുന്നത് സ്വാഭാവികമാണെന്ന് മുഖ്യമത്ത്രി പ്പറഞ്ഞു അതേസമയം പ്രവാസികളുടെ മടങ്ങിവരവിൽ ആശങ്ക വേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാരുങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് ഇല്ലാതെ ട്രെയിൻ വഴി യാത്രക്കാരെത്തുന്നത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ തകിടം മറിക്കുന്നതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മുഖാവരണങ്ങളും ആരോഗൃ സുരക്ഷാ മാനദണ്ഡങ്ങളും പരീക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങളുമടങ്ങിയ ലഘുലേഖ വീട്ടിലെത്തിച്ചിരുന്നു രക്ഷിതാക്കളെ സ്കൂൾ പരിസരത്ത് പ്രവേശിപ്പിക്കില്ല മാറ്റിവച്ച എസ് എസ് എൽ സി വി എച്ച് എസ് പരീക്ഷകൾ ഇന്നലെ പുനരാരംഭിച്ചു

കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് പദവി നൽകുന്നത്